പൂർത്തിയായി രാജസ്ഥാനിലും തെലങ്കാനയിലും പ്രചാരണം ഊർജിതം

വോട്ടെടുപ്പ് ഇന്ന്

പതിനഞ്ചാം ധനകാരൃ കമ്മി്ഷന്റെ ത്രിദിന നാഗാലാന്റ് സന്ദർശനം ഇന്ന് മുതൽ

കേരളത്തിൽ ജനതാദൾ എസിലെ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും നിരോധനാജ്ഞ വെള്ളിയാഴ്ച വരെ നീട്ടി

പരസൃപ്രചാരണം ഇന്നലെ വൈകിട്ട് സമാപിച്ചു കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

ജെ പി ക്കുവേണ്ടി പ്രധാന്മിന്തിട് നരേന്ദ്രമോദിയും കോൺഗ്രസിനുവേണ്ടി പാർട്ടി അധ്യക്ഷ്ൻ ്ട്രാഹുൽ ഗാന്ധിയും വിവിധ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടൂത്തിരുന്നു

അതേസമയം അടുത്തമാസം ഏഴിന് വോട്ടെടുപ്പ് നടക്കുന്ന തെലങ്കാനയിലും രാജസ്ഥാനിലും പ്രചാരണം ഊർജിതമായി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെലങ്കാനയിൽ നിസാമാബാദ് മെഹബൂബ് നഗർ എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും

ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

തലസ്ഥാനമായ കൊഹിമയിൽ എത്തുന്ന സംഘം ഗ്രാമ നഗര മേഖലയിലെ തദ്ദേശ സ്വയംഭരണിച്ച സംഘങ്ങളുമായും ആദിവാസി സംഘടനകളുടെ പ്രതിനിധിക്കൂറുമായും ചർച്ചകൾ നടത്തും നാളെ സംഘം മുഖ്യമന്ത്രിയേയുട്ട് സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരേയും കാണും സന്ദർശനത്തീന്റെ ഭാഗമായി സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാര വ്യവസായ വാണിജ്യ രംഗത്തെ പ്രമുഖർ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയും ഒരുക്കിയിട്ടുണ്ട് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ സംഘം തൌഫേമ ടൂറിസ്റ്റ് വില്ലേജും സന്ദർശിക്കും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്നലെ രാത്രി ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു അടുത്ത മാസം രണ്ടിന് അദ്ദേഹം ചുമതലയേൽക്കും

നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

റാവത്ത് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം

മറ്റ് മാറ്റങ്ങളോടൊപ്പം നിലവിലെ ഏറ്റവും പുതിയ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വിവരങ്ങൾ കൈമാറാനുള്ള വൃവസ്ഥകളും പരിഷ്കരിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു

പരാതികളിൽ തുടർ നടപടി ക്ക്കെക്കാള്ളാത്തവരെ ശിക്ഷിക്കണമെന്ന് ജസ്റ്റിസ് മദൻ ബി ലോക്കുർ ക്ട്ട് ജസ്റ്റിസ് ദീപക് ഗുപ്ത എന്നിവരടങ്ങിയ ബഞ്ച് ആവശ്യപ്പെട്ടു

എസ് എൽ

ഭൂമിയുടെ ഉപരിതലത്തിന്റെ സമഗ്രമായ പഠനമാണ് ഐ

ബി അബ്ദുൾ റസാഖിന്റെ നിര്യാണത്തിൽ ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയും

ഷാജി നിയമസഭാംഗം അല്ലാതായെന്ന് നിയമസഭാ സെക്രട്ടറി ഉത്തരവിറക്കിയ സാഹചര്യത്തിൽ നിയമസഭാ അദ്ദേഹത്തിന് സമ്മേളനത്തിൽ പങ്കെടുക്കാനാവില്ല ഹൈക്കോടതി വിധിക്കെതിരെ ശ്രീ ഷാജി സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ കോടതി ഇന്ന് പരിഗണിക്കും

വൈകിട്ട് അഞ്ച് മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ

കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കാൻ ജനതാദൾ ദേശീയ നേതൃത്വം തീരുമാനിച്ച സാഹചര്യത്തിലാണ് രാജിവച്ചത് ജലവിഭവ വകുപ്പിന്റെ ചുമതലയാണ് അദ്ദേഹം വഹിച്ചിരുന്നത്

ശബരിമല സന്നിധാനം പമ്പ നിലയ്ക്കൽ ഇലവുങ്കൽ പുഎന്നിവിടങ്ങളിൽ സംഘർഷ സാധൃത കണക്കിലെടുത്ത് നിരോധ്നാജ്ഞ നീട്ടണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഭക്തർക്ക് ഒറ്റയ്ക്കോ സംഘമായോ ദർശനത്തിന് എത്തുന്നതിനും ശരണം വിളിക്കുന്നതിനും തടസ്സമില്ല ശബരിമലയിലെ വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിയിലും പുനക്രമീകരണം നടത്തിയിട്ടുണ്ട്

തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിൽപശാല ഉദ്ഘാടനം ചെയ്യും

കേരളത്തിലെ പ്രളയാനന്തര സാഹചരൃങ്ങളൂം ലൈഫ് ആർദ്രം ഹരിത കേരളം എന്നീ മിഷനുകളുടെ പ്രവർത്തന പുരോഗതിയും ശിൽപശാല വിശദമായി വിലയിരുത്തും

സുധാകരൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു

ചെന്നൈ ആസ്ഥാനമായി മാത്രം സോണൽ ഓഫീസ് ഉള്ളതിനാൽ കേരളത്തിന്റെ പ്രധാന റയിൽ പദ്ധതികൾ അനിശ്ചിതമായി നീണ്ടുപോകുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി

പൊതുജനാരോഗ്യത്തെ ബ്ബ്ധിക്കുന്ന നിരവധി ഘടകങ്ങൾ കണ്ടെത്താൻ ആരോഗ്യ മേഖലയിലെ വിദഗ്ധരെ സഹായിക്കുന്ന വിവരങ്ങൾ ഈ സംവിധാനത്തിലൂടെ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം രോഗ സൂചകമായ കാരണങ്ങൾ മരണനിരക്ക് പകർച്ചവ്യാധികളുടെ വ്യാപനം തുടങ്ങി എല്ലാ വിഷയങ്ങളെയും കുറിച്ച് സംസ്ഥാനങ്ങൾ നൽകുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ സംവിധാനത്തിന്റെ പ്രവർത്തന മികവെന്ന് പ്രീതി സുഡാൻ ചടങ്ങിൽ പറഞ്ഞു

കായിക വകുപ്പിന്റെ ആഭിമുഖൃത്തിൽ എല്ലാ വർഷവും മാരത്തൺ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ അറിയിച്ചു

ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ ശ്വീർ ൻ ്ധവാൻ പതിനൊന്നാം സ്ഥാനത്തെത്തി

എഫ് എഫ്

ഒരു ഭീകരനെ പോലീസ് പിടികൂടി

ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കുണ്ണവരെയും ധനസഹായം നൽകുന്നവരെയും ഒറ്റപ്പെടുത്തണമെന്ന് പ്ലൂമാനിയൻ വിദേശകാര്യമന്ത്രി തിയോഡർ മെലസ്കാനു പറഞ്ഞുക്ക് ഭീകരതയ്ക്കെതിരെ സമ്പൂർണ യു എൻ കൺവെൻഷൻ വേണമെന്നു ഇന്ത്യയുടെ നിലപാടിനോട് പൂർണ യോജിപ്പാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ പൊതു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം